കേടാകുന്നതും തമ്മിൽ പ്പൃത്യാ്സമുണ്ടെന്നും കൃത്രിമം കാട്ടിയ സംഭവങ്ങൾ ഇതുപ്പ്രെ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷ്ണർ സുനിൽ അറോറ്

ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം താൽപര്യ പത്രം ക്ഷണിച്ചു

കനത്ത സുരക്ഷയൊരുക്കി പൊലീസ്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

സത്യ്സന്ധരായ നികുതിദായകരുടെയും മധ്യവർഗത്തിന്റെയും ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലിലെ എല്ലാ നിർദ്ദേശങ്ങളുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ റഫാൽ വിവാദം ഉയർത്തിക്കാട്ടി കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിൽ വാക്കൌട്ട് നടത്തി സമാജ്വാദി പാർട്ടിത്തലവൻ അഖിലേഷ് യാദവിനെ ലക്നൌ വിമാനത്താവളത്തിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് എസ് പി അംഗങ്ങൾ പ്രതിഷേധിച്ചതോടെ രാജ്യസഭാ നടപടികളും തടസ്സപ്പെട്ടു

എന്നാൽ നടപ്പ് സമ്മേളനകാലത്ത് രാജ്യസഭയിൽ രണ്ട് ബിൽ പാസാക്കാനായി

ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനമായതിനാൽ പ്രധാന ബില്ലുകളിലെങ്കിലും സഭകളുടെ അനുമതി നേടാനാവും ഗവൺമെന്റ് ഇന്ന് ശ്രമിക്കുക

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരഞ്ഞെടുപ്പ് ക്ഷ്മിഷണർ അശോക് ലാവാസയ്ക്കും മറ്റ് മുതിർന്ന ഉദ്യോഗ്സ്ഥർക്കും ഒപ്പം ആന്ധ്രാപ്രദേശിലെ ലോക്സഭ് തെർഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം അമരാപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം കാട്ടുന്നതും ക്ഷേട്ടാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും കൃത്രിമം കാട്ടിയ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണമെന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിഷയത്തിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാംപിൾ സർവെ ഓർഗനൈസേഷനും അവരുടെ റിപ്പോർട്ടുകൾ ഉടൻ സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അഥവാ ക്രഡായി ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ക്രഡായി സംഘടിപ്പിക്കുന്ന പ്രദർശനവും പ്രധാനമന്ത്രി സന്ദർശിക്കും

ഇന്ത്യയിലെ തന്ത്രപ്രധാന പങ്കാളികളിൽ നിന്നും പ്രതിരോധനിർമാണ മേഖലയിലുള്ള വിദേശകമ്പനികളിൽ നിന്നുമാണ് താല്പര്യപത്രം ക്ഷണിച്ചത്

മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇത് വൻ കുതിപ്പ് പകരുമെന്ന് കരുതുന്നു നാവികസേന തെരച്ചിലിനായുള ഒഴിപ്പിക്കലുകൾക്കാ യും മറ്റു നിലവിൽ ഉപയോഗിച്ചുവരുന്നു ച്ചേതക് കോപ്റ്ററുകൾക്ക് പകരമാണ് പുതിയ കോപ്റ്ററുകൾക്ക് തൃത്പര്യപത്രംക്ഷണിച്ചത്

എസ് എഫും പാകിസ്ഥാൻ റെയ്ഞ്ചേഴ്സും ഫ്ളാഗ് മീറ്റിംഗ് നടത്തി പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ആവശ്യത്തെ തുടർന്ന് ജമ്മുവിലെ സുചേത്ഗാർഹ് മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിലാണ് യോഗം നടന്നത്

മേഖലയിലെ ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് സേന നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവയ്പ് ഉണ്ടായത്

ഈ സ്ഥിതി ഈ വർഷവും തുടരുകയാണ്

അതായത് പ്രതിദിനം ശരാശരി ഏഴ് വെടിനിർത്തൽ കരാർ ലംഘനം ഇത്തരം സംഭവങ്ങളിൽ കൊല്ലപ്പെടുന്ന ജവാൻമാരുടെ എണ്ണം മൂന്നിരട്ടിയായി

ഫണ്ട് വിനിയോഗത്തിന്റെ നിരീക്ഷണം വിവരങ്ങളുടെ കൈമാറ്റം തട്ടിപ്പ് റിപ്പർട്ട് ചെയ്യൽ തുടങ്ങിയ നടപടികൾ പാലിക്കാത്തതിന്റെ പേരിൽ അലഹബാദ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയ്ക്കുമേൽ ഒന്നരക്കോടി രൂപവീതം പിഴയും ചുമത്തിയിട്ടുണ്ടെന്ന് ആർബിഐ മുംബൈയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ആന്ധ്രാ ബാങ്കിനുമേൽ ഒരു കോടി രൂപയുടെ പിഴയും ചുമത്തി

ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് തവണ വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു

ബി ഐ ചോദ്യം ചെയ്യും ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി നിർദേശ പ്രകാരമാണ് ചോദ്യം ചെയ്യൽ ചിട്ടി തട്ടിപ്പ് കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്ന രാജീവ് കുമാർ തെളിവുകൾ നശിപ്പിച്ചെന്നാണ് ആരോപണം

തമിഴ്നാട് രണ്ടാം സ്ഥിനൃത്തും ഡൽഹി മൂന്നാമതും എത്തി കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

കേരളത്തിന്റെ അപർണ റോയും തമിഴ്നാടിന്റെ ഗിരിധരണിയും മികച്ച അത്ലറ്റുകളായി

എറണാകുളം മാതിരപ്പിള്ളി വി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തെ അനുഗമിക്കും

വരുന്ന ജൂലൈയിൽ രാജ്യത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അഷ്ട്റഫ് ഘനി ഭരണകൂടത്തിന്റെ ഈ നീക്കമെന്നത് ശ്രദ്ധ്യേയമാണ് മൂന്നു മാസം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെട്ടുപ്പിന്റെ ഫലം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല

ഇന്ന് പുലർച്ചെ മഹാഗണപതിഹോമത്തോടെ പൂജകൾക്ക് തുടക്കമായി ഇന്ന് ലക്ഷാർച്ചനയുണ്ട്

സന്നിധാനത്തും പമ്പയിലും പൊലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിലെ ആചാരനുഷ്ഠാനങ്ങൾ സംരക്ഷി ക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ന് ബി ജെ പി ജില്ലാകേന്ദ്രങ്ങളിൽ സത്യ ഗ്രഹം സംഘടിപ്പിക്കുന്നുണ്ട്

നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്കുള്ള പ്രത്യേക പദ്ധതിയും ഇതിലുണ്ടാകും